എസ് സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ടോൾ ശേഖരണത്തിന് ഗവൺമെന്റ് അന്തിമ രൂപം നൽകിയതായി കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരി രണ്ടു വർഷത്തിനകം ടോൾ ബൂത്ത് രഹിത രാജ്യമായി ഇന്ത്യ മാറുമെന്നും ഗഡ്കരി

ബി എസ് ഇ സ്കൂളുകളിൽ അമിത ഫീ ഈടാക്കുന്നത് കണ്ടെത്തുമെന്ന് ഗവൺമെന്റ് ഹൈക്കോടതിയെ അറിയിച്ചു

സിയെ തോൽപ്പിച്ചു

വാർത്തകൾ വിശദമായി രാജ്യത്ത് വാഹനങ്ങളുടെ തടസ്സമില്ലാത്ത നീക്കം ഉറപ്പാക്കുന്നതിന് ജി

എസ് സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ടോൾ ശേഖരണത്തിന് ഗവൺമെന്റ് അന്തിമ നൽകിയതായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ രുപം ഗഡ്കരി അറിയിച്ചു ഇതുവഴി അടുത്ത രണ്ടു വർഷത്തിനകം ടോൾബൂത്ത് രഹിത രാജ്യമായി ഇന്ത്യ മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിൽ അസോച്ചം ഫൌണ്ടേഷൻ വാര പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വാഹനങ്ങളുടെ നീക്കം അടിസ്ഥാനമാക്കി ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് ടോൾ തുക നേരിട്ട് ഈടാക്കുമെന്നും നിതിൻ ഗഡ്കരി വിശദീകരിച്ചു ഇപ്പോൾ എല്ലാ വാണിജ്യ വാഹനങ്ങളിലും വെഹിക്കിൾ ട്രാക്കിങ് സംവിധാനം ഉണ്ടെന്നും പഴയ വാഹനങ്ങളിൽ ജി

എസ് സാങ്കേതിക വിദ്യ ഘടിപ്പിക്കാൻ ഗവൺമെന്റ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

അസോച്ചം എന്റർപ്രൈസ് സെഞ്ചുറി അവാർഡ് ടാറ്റ ഗ്രൂപ്പിന് വേണ്ടി രത്തൻടാറ്റ പ്രധാനമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങും രുര രാജ്യത്ത് കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കൊണ്ടുവന്ന കാർഷിക പരിഷ്കരണ നിയമങ്ങൾ കാർഷിക മേഖലയിൽ പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിങ് തോമർ പറഞ്ഞു രാജ്യത്തെ കർഷകരെ നിയമം കൂടുതൽ ശക്തരാക്കുമെന്നും കർഷകർക്ക് അയച്ച കത്തിൽ അദ്ദേഹം അറിയിച്ചു എല്ലാവർക്കുമൊപ്പം എല്ലാവരുടേയും വികാസം എല്ലാവരുടേയും വിശ്വാസം എന്ന സന്ദേശവുമായി മുന്നോട്ടു പോകുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് വിവേചനമില്ലാതെ എല്ലാവരെയും സേവിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പുതിയ നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ നിരവധി കർഷകർക്ക് ലഭ്യമായി തുടങ്ങിയെന്നും തോമർ അറിയിച്ചു

എല്ലാ കർഷകരും കത്ത് വായിക്കണമെന്നും ജനങ്ങൾ കഴിയുന്നത്ര ആളുകൾക്ക് അത് എത്തിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർഥിച്ചു

പുതിയ രാജ്യരക്ഷ സംഭരണ നടപടി ക്രമം അനുസരിച്ച് ചേർന്ന കൌൺസിലിന്റെ ആദ്യ യോഗമാണ് ഈ തീരുമാനമെടുത്തത് ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് പദ്ധതികൾക്ക് തീരുമാനം കൂടുതൽ ഉത്തേജനം നൽകും രുര ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സംഘം കോവിഡ് മഹാമാരി പരത്തിയ കൊറോണ വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ അടുത്ത മാസം ആദ്യം ചൈന സന്ദർശിച്ചേക്കും

രും കോവിഡ് വ്യാപനത്തിന്റെ തുടക്കത്തിൽ അങ്ങേയറ്റം ജാഗ്രത പുലർത്തി ഒരുവേള രോഗവ്യാപനത്തെ അതിജീവിച്ച നമ്മുടെ സൂക്ഷ്മതയിൽ ഇന്ന് വലിയ കുറവ് വന്നിട്ടുണ്ടെന്ന് നടൻ നിയാസ് ബക്കർ പറഞ്ഞു

തുടർന്ന് ബന്ധുക്കളെ കൂടി പരിശോധനക്ക് വിധേയമാക്കുകയായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു

പനി വയറുവേദന വയറിളക്കം തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ

ബി എസ് ഇ സ്കൂളുകളിൽ അമിത ഫീ ഇൌടാക്കുന്നത് കണ്ടെത്തുമെന്ന് ഗവൺമെന്റ് ഹൈക്കോടതിയെ അറിയിച്ചു

കോവിഡ് പ്രതിസന്ധി കാലത്തും സി ബി എസ് ഇ സ്കൂളുകളിൽ അമിത ഫീ ഇൌടാക്കുന്നുവെന്ന രക്ഷിതാക്കളുടെ ഹർജി പരിഗണിക്കവേയാണ് ഗവൺമെന്റ് കോടതിയിൽ ഇക്കാര്യം അറിയിച്ചത്

ബി എസ് ഇ സ്കൂളുകൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ലാഭ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കരുതെന്നാണ് നിലപാടെന്നും ഗവൺമെന്റ് കോടതിയെ അറിയിച്ചു രുമ സ്വാശ്രയ മെഡിക്കൽ പ്രവേശന ഫീയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇടപെടാനാകില്ലെന്ന് വ്യക്തിമാക്കിയ സുപ്രീംകോടതി ഫീ നിർണയ സമിതിക്കെതിരായ കോടതി പരാമർശങ്ങൾ നീക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല ഇതോടെ ഈ അധ്യയന വർഷം സ്വാശ്രയ സീറ്റുകളിൽ പ്രവേശനം നേടുന്ന വിദ്യാർഥികൾ മാനേജ്മെന്റുകൾ നിശ്ചയിച്ച ഫീ നൽകേണ്ടി വരും

എസ് എൽ ഫുട്ബോളിൽ ബംഗലൂരു എഫ് സിക്ക് ജയം ഗോവയിൽ നടന്ന മത്സരത്തിൽ ഒഡീഷ എഫ് സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബംഗലൂരു പരാജയപ്പെടുത്തിയത് ഇന്ന് നോർത്ത് ഇൌസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂർ എഫ്സിയുമായി ഏറ്റുമുട്ടും

നായകൻ വിരാട് കോഹ് ലിയുടെ അർധ സെഞ്ച്വറിയും ചേതേശ്വർ പൂജാര അജിങ്ക്യ രഹാനെ എന്നിവരുടെ ബാറ്റിങ്ങുമാണ് ഓസ്ട്രേലിയൻ ബൌളർമാർക്ക് മുന്നിൽ ഇന്ത്യയെ ഇന്നലെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചത്

രംഭ ദക്ഷിണ മേഖല ദേശീയ സീനിയർ ടെന്നിസ്ബോൾ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ആന്ധ്രാ പ്രദേശിലെ ഓങ്കോളിൽ നാളെ ആരംഭിക്കും രണ്ടു ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ പുരുഷ ടീമിനെ സി പി മുഹമ്മദ് സജാദും വനിതാ ടീമിനെ വി ആതിരയും നയിക്കും രംഭ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി

വീണ്ടും ഹാജരാകാൻ നിർദേശം നൽകിയാണ് വിട്ടയച്ചത് രംഭ രണ്ട് ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടക്കും വയനാട് സുത്താൻബത്തേരി മുനിസിപ്പാലിറ്റിയിലെ തൊടുവെട്ടി ഡിവിഷനിലെ ഒന്നാം നമ്പർ ബൂത്തിലും തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ കിസാൻ കേന്ദ്രം ഡിവിഷനിലെ ഒന്നാം നമ്പർ ബൂത്തിലും ആണ് റീപോളിംഗ് വോട്ടെണ്ണൽ ഇന്ന് വൈകീട്ട് എട്ടിന് നടക്കും

പി പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനത്തിനിടെ പാലക്കാട് നഗരസഭാ കെട്ടിടത്തിൽ ജയ് ശ്രീറാം എന്നെഴുതിയ ബാനർ തൂക്കിയ സംഭവത്തിൽ പൊലീസ് കേസെടുത്തു നഗര സഭാ സെക്രട്ടറിയുടെ പരാതിയിലാണ് കേസെടുത്തതെന്ന് ടൌൺ സൌത്ത് പോലീസ് പറഞ്ഞു

യോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു രും മതതീവ്രവാദ സംഘടനകളുമായുണ്ടാക്കിയ കൂട്ടുകെട്ടിന്റെ വിജയമാണ് മലപ്പുറം ജില്ലയിൽ മുസ്ലീംലീഗും യു

എഫും നേടിയതെന്ന് സി

ലീഗിന്റെ ബഹുജന അടിത്തറ വിപുലമായതുകൊണ്ടാണ് വിജയം നേടിയതെന്ന പി കെ കുഞ്ഞാലിക്കുട്ടി എം പിയുടെ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്നും ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു രംഭ നിലമ്പൂർ കൊച്ചുവേളി പ്രതിദിന പ്രത്യേക ട്രെയിനിന് ഇന്നുമുതൽ കോട്ടയത്ത് സ്റ്റോപ്പ് അനുവദിച്ചതായി റെയിൽവേ അറിയിച്ചു യശ്വന്ത്പൂർ കണ്ണൂർ പ്രത്യേക ട്രെയിനിന്റെ ഈറോഡിനും കണ്ണൂരിനും ഇടയിലെ സമയത്തിൽ മറ്റന്നാൾ മുതൽ മാറ്റം വരും